ന്യൂഡൽഹിയിൽ നടക്കുന്ന ന്റിരി ആയോഗിന്റെ നാലാമത് ഭരണസമിതിയോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാന്ടമന്ത്രി രാജ്യത്ത് നിലനിൽക്കുന്ന തെരഞ്ഞെടുപ്പ് സംസ്പാദിയത്തിന് ഇതുവരെ മാറ്റം വന്നിട്ടില്ലെന്നും ത്രെത്തെടുപ്പുകൾക്കായി ഒരു ഏകികൃത വോട്ടർപട്ടിക കൊണ്ടുവരുന്നതിനെ കുറിച്ച് പ്രധാനമന്ത്രി പരാമർശിച്ചതായും പിന്നീട് നിതി ആയോഗ് വൈസ് ചെയർമാൻ രാജീവ് കുമാർ മാധൃമങ്ങളോട് പറഞ്ഞു

വിഷയം തെരഞ്ഞെടുപ്പ് കമ്മീഷനും നിയമകമ്മീഷനും പരിശോധിച്ചുവരികയാണ്

പ്രദേശത്ത് നടന്നുവരുന്ന ഭീകരവിരുദ്ധ സൈനിക പ്രവർത്തനങ്ങലിൽ ഇതുവരെ നാല് ഭീകരർ കൊല്ലപ്പെട്ടതായി സേനാവൃത്തങ്ങൾ ആകാശവാണിയോട് പറഞ്ഞു

വിദേശ ഇന്ത്യക്കാർക്ക് ഇന്തൃയുമായി വൈകാരിക്ബന്ധം ഉണ്ടെന്നും രാജൃത്തിന്റെ പുരോഗതിയ്ക്കായി ്യൂ അവർ വിലപ്പെട്ട സംഭാവനകൾ നൽകുമെന്നും അദ്ദേഹ്ം പ്രത്യാശിച്ചു

ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ ഗ്രീസിലെത്തിയ ശ്രീ രാംനാഥ് കോവിന്ദ് സുരിനാം കൃൂബ എന്നീ രാഷ്ട്രങ്ങളും സന്ദർശിക്കും

ജെ പി അധ്യക്ഷൻ അമിത്ഷാ ഇന്ന് അസമിൽ കാൻസർ സെന്ററിന്റെ ശിലാസ്ഥാപന ചടങ്ങിൽ കെയർ സംബന്ധിക്കും

മുഖ്യമന്ത്രി സർബാനന്ദ സോണോവാളും വൃവസായി രത്തൻ ടാറ്റയും ചടങ്ങിൽ സംബന്ധിക്കും അസം ഗവൺമെന്റും ടാറ്റ ട്രസ്റ്റും സംയുക്തമായി ആരംഭിച്ച അസം കാൻസർ കെയർ ഫൌണ്ടേഷന്റെ കീഴിലാണ് സെന്ററുകൾ ആരംഭിക്കുന്നത്

ശ്വാസതടസ്സവും നേത്രരോഗങ്ങളും പ്രമൂലം നിരവധിപ്പേർ ആശുപത്രികളിലെത്തി

ദേശ്മീയ ത്ലസ്ഥാനത്ത് ഇന്ന് ഇടിയോടുകൂടിയ നേരിയ മ്ഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥ വിഭാഗം മുന്നില്ലിയിപ്പ് നൽകി

ശനിയാഴ്ച ജോഹന്നാസ്ബർഗിലെ വാൻഡറേറ്റ്സ് സ്റ്റേഡിയത്തിൽ നടന്ന യോഗ പരിപാടിയിൽ ആയിരത്തോളം പേർ പങ്കെടുത്തതായി ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥൻ കെ ജെ ശ്രീനിവാസവ പറഞ്ഞു ഇന്ത്യൻ നയതന്ത്ര കാര്യാലയവും ശിവാനന്ത ലോക സമാധാന സംഘടനയും ചേർന്ന് ഡർബനിൽ ഇന്നലെ ഒരു യോഗ പരിപാടി സംഘടിപ്പിച്ചിരുന്നു

ഫീനിക്സ് സെറ്റിൽമെന്റിൽ അടുത്ത ആഴ്ച രണ്ട് പരിപാടികൾ കൂടെ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വൃക്തമാക്കി

വിശദാംശങ്ങളുമായി കൃഷ്ണ

ഇന്ത്യയും യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള സാംസ്കാരിക ബന്ധും ഊട്ടിയുറപ്പിക്കാൻ ചലച്ചിത്രമേള സഹായകമാകും

ഡയറക്ട്രേറ്റ് ഓഫ് ഫിലിം ഫെസ്റ്റിവെലും യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികളും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും എംബസികളും സംയുക്തമായിട്ടാണ് മേള സംഘടിപ്പിച്ചിരിക്കുന്നത്

ന്യൂഡൽഹി ചെന്നൈ പോർട്ട് ബ്ലെയർ പൂനെ പുതുച്ചേരി കൊൽക്കത്ത ജയ്പൂർ വിശാഖപട്ടണം ഹൈദ്രാബാദ് ഗോവ എന്നിവയാണ് മേള നടക്കുന്ന മറ്റ് നഗരങ്ങൾ

ഇന്ന് വൈകിട്ട് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച് തീരുമാനം ഉണ്ടാകും നിലവിൽ അനുവദിച്ച തുക പര്യാപ്തമല്ല ഈ തുക കൊണ്ട് വീട് പുനർനിർമിക്കാൻ കഴിയില്ല എന്നത് കൂടി കണക്കിലെടുത്താണ് സഹായം വർദ്ധിപ്പിക്കുന്നതെന്ന് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടിയായി റവന്യുമന്ത്രി പറഞ്ഞു മഴയിൽ തകർന്ന റോഡുകൾ നന്നാക്കാനും വൈദ്യുതിബന്ധം പുനസ്ഥാപിക്കാനുമുള്ള നടപടി സ്വീകരിച്ചുവരികയാണ്

പ്രതിപക്ഷത്തെ പാറയ്ക്കൽ അബ്ദുള്ളയാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത് കാലവർഷക്കെടുതികൾ നേരിടുന്നതിൽ സംസ്ഥാന ഗവൺമെന്റ് പരാജയപ്പെട്ടെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തരപ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി

ഇതനുസരിച്ച് നാളെയും മറ്റന്നാളുമായി സ്കൂളുകളിൽ പ്രവേശനം തേടാം

ഈ വർഷത്തെ പ്തസ് വൺ ക്ലാസുകൾ വ്യാഴാഴ്ച ആരംഭിക്കും

തീരാദുരിതം അനുഭവിക്കുന്ന അഫ്ഗാൻ ജനതയ്ക്ക് സമാധാനം എത്തിക്കാനുള്ള എല്ലാ ശ്രമത്തേയും ഇന്തൃ പിന്തുണയ്ക്കുമെന്ന് വിദേശകാരൃ മന്ത്രാലയ വക്താവ് രവിഷ്കുമാർ അറിയിച്ചു

ഗ്രൂപ്പ് ജി യിലെ രണ്ടാം മത്സരത്തിലാണ് ഇന്ന് ഇരു ടീമുകളും ഏറ്റുമുട്ടുന്നത്

ഇന്നലെ ഗ്രൂപ്പ് എഫിൽ നടന്ന മത്സരത്തിൽ ലോകചാമ്പ്യൻമാരായ ജർമ്മനി മെക്സിക്കയോട് പരാജയപ്പെട്ടു ഗ്രൂപ്പ് ഇ യിൽ ഫ്രീ കിക്ക് ഗോളിനാണ് കോസ്റ്റാറിക്കയെ സെർബിയ പരാജയപ്പെടുത്തിയത്

ഇരുടീമുക്കളും ഓരോ ഗോൾവീതം നേടിയാണ് സമനിലയിൽ പിരീഞ്ഞത്

ഭൂചലനത്തിൽ ട്രെയിൻ ഗതാഗതം താറുമാറായി ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല സുനാമി മുന്നറിയിപ്പും നൽകിയിട്ടില്ല രാജ്യത്തെ ജനങ്ങളുടെ രക്ഷയാണ് പ്രധാന പരിഗണന എന്നും ഇതിനായി ഗവൺമെന്റ് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചുവരികയാണെന്നും ജപ്പാൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെ പറഞ്ഞു

ബറാക് താഴ്വരയിലെ മൂന്ന് ജില്ലകളിൽ സ്ഥിതി രൂക്ഷമായി തുടരുകയാണ് ആറു ജില്ലകളിലായി നാലരലക്ഷം പേരെ പ്രളയം ബാധിച്ചിട്ടുണ്ട് ദുരന്തപ്രതികരണ സേനയുടെ കേന്ദ്ര സംസ്ഥാന വിഭാഗങ്ങൾ ഇന്നലെ ആറായിരം പേരെ രക്ഷപ്പെടുത്തി